വെടിനർത്തൽ കരാർ ലംഘ്പിച്ചു

നാളെ റഷ്യയിലേക്ക് തിരിക്കും ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സംയുക്ത സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും

ജയന്തി സമ്മേളനം മൂഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു

ചൈനയുടെ അഭ്യർഥന മാനിച്ചാണ് ഇന്നു രാവിലെ യോഗം ആരംഭിച്ചത് അതിർത്തി സംഘർഷം പരിഹരിക്കുന്നതിന് ഇന്തൃയും ചൈനയും കഴിഞ്ഞ മൂന്ന് മാസമായി നയതന്ത്ര സൈനിക ബന്ധം പുലർത്തി വരുന്നുണ്ട് വിഷയം ഉത്തരവാദിത്തതോടെ കൈകാര്യം ചെയ്യണ മെന്നും ഇരുവിഭാഗവും പ്രകോപനപരമായി ഇടപെടരുത് എന്നും ഉഭയകക്ഷി കരാറുകൾ അനുസരിച്ച് സമാധാനം പാലിക്കണമെന്നും ഇരുരാജ്യത്തിന്റെയും വിദേശകാര്യ മന്ത്രിമാരും പ്രത്യേക പ്രതിനിധികളും ധാരണയായിരുന്നു

ഇന്ത്യൻ സൈനികർ ശക്തമായി തിരിച്ചുടിച്ചു

രാജസ്ഥാൻ ഉത്തർപ്രദേശ് പഞ്ചാബ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ പോസിറ്റിവിറ്റി നിരക്ക് അഞ്ച് ശതമാനത്തിൽ താഴെയാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച പ്രകാരമുള്ള അത്രയും എണ്ണം പരിശോധനകൾ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഏകദേശം രണ്ടരക്കോടി പേരെ രോഗം ബാധിച്ചതായാണ് കണക്ക് അമേരിക്കയിലും ബ്രസീലിലും രോഗബാധിതർ വർധിക്കുകയാണ്

ലോക്സഭ സെക്രട്ടേറിയറ്റാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത് രാജ്യസഭയും അന്ന് തന്നെ സമ്മേളിക്കും കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കും സമ്മേളനം

യുഎസ് ഇന്ത്യ വീക്ക് നാവിഗേറ്റിങ് ന്യൂ ചലഞ്ചസ് എന്ന വിഷയത്തിൽ ഇന്തോ യുഎസ് ഉഭയകക്ഷി സഹകരണത്തിന്റെ ഭാഗമായ വ്യാപാരം നിക്ഷേപം തന്ത്രപ്രധാന ഊർജ്ജ ബന്ധം ഫിൻടെക് സഹകരണം ആരോഗ്യ സംരക്ഷണം സാങ്കേതികവിദ്യ ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നിവയുൾപ്പടെ ചർച്ച ചെയ്യും

ഇ

യ്ക്ക് അയച്ച കത്തിൽ കേന്ദ്രമന്ത്രി ഉയർത്തിക്കാട്ടി

വാറങ്കൽ റൂറൽ ജില്ലയിലെ പസരഗോണ്ടയിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം കാറിലെ യാത്രക്കാരാണ് മരിച്ച അഞ്ചു പേരും മണൽ കയറ്റിവന്ന ലോറി മറ്റൊരു വാഹനത്തെ മറികടക്കവേ കാറിൽ ഇടിക്കുകയായിരുന്നുവെന്ന് പൊലീസ് പറഞ്ഞു

ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ പ്രതിരോധ മന്ത്രിമാരുടെ സംയുക്തസമ്മേളനത്തിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രതിരോധമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ശ്രീ

രാജ്നാഥ്സിംഗ് കൂടിക്കാഴ്ച നടത്തും

ഗുരുവിന്റെ ് ജന്മഗൃഹമായ പ്രിയ്പുഴന്തിയിൽ നടക്കുന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി പ്പിണ്റായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു

കോവിഡ് മഹാമാരിയിൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഗുരുവിന്റെ വാക്കുകൾ വഴി കാട്ടിയായി മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആവശ്യവുമായി ഉപദേശിച്ചു ശീലമാണ് ശുചിത്വം കോവിഡിനു എതിരെയുള്ള നമ്മുടെ പോരാട്ടത്തിനു ശുചിത്വബോധത്തിന്റെ മികച്ച അടിത്തറയിട്ടത് ഗുരുദേവന്റെ ഈ മാതൃകാ വിപ്ലവമായിരുന്നു മനുഷ്യർ മത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മഹത്തായ സന്ദേശമാണ് നമ്മളെ നയിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി ചതയ ദിന സന്ദേശത്തിൽ കുറിച്ചു ശ്രീനാരായണ ഗുരു നല്കിയ സമഭാവനയുടെയും സാഹോദര്യത്തിന്റെയും ഒരുമയുടെയും ദർശനങ്ങൾ ഇന്നും പ്രസക്തമാണ് സമാധി സ്ഥലമായ ശിവഗിരിയിലും ചടങ്ങുകൾ നടക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ത്യയിൽ തേങ്ങ ഉൽപാദനത്തിൽ കേരളം ഒന്നാമതാണെങ്കിലും തമിഴ്നാട് കർണ്ണൂട്ടക എന്നിവയും ഈ മേഖലയിൽ മുന്നിലാണ്

കരകൌശല വസ്തുക്കൾക്കും കൂടുതൽ പ്രോത്സാഹനം നൽകുന്നുണ്ട്

മലയോര മേഖലയിൽ ഇടിമിന്നൽ സജീവമാകാനാണ് സാധ്യത

അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസ്സിലും നിൽക്കരുത്

മല്ലഖാംബ് പാരാസ്പോർട്സ് ടഗ് ഓഫ് പാർ റഗ്ബി വുഷു റോൾബോൾ ഫെൻസിംഗ് ബധിരർക്കുള്ള കായിക ഇനങ്ങൾ ബെയ്സ്ബോൾ എന്നിവയാണ് പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയത്

വിപണി തുറന്നിടുന്നതിനൊപ്പം വിവേചന്ത്ത്തിതവും സുതാര്യവുമായ നിക്ഷേപ അന്തരീക്ഷം പ്രോത്സാഹ്കിപ്പിക്കുമെന്ന് മൂന്നു രാഷ്ട്രങ്ങളും ഉറപ്പ് നൽകി ഇന്ത്യ ജപ്പാൻ ഔസ്ട്രേലിയ വാണിജ്യ മന്ത്രിമാരുടെ വീഡിയോ കോൺഫറൻസിലാണ് തീരുമാനം ഇന്തോ പസഫിക് മേഖലയുടെ സഹകരണ് പ്രവർദ്ധിപ്പിക്കുന്നതിന് ഒരു പുതിയ സംരംഭം ആരംഭിക്കാനൂറ്ട് ത്രീരാഷ്ട്രങ്ങൾ തമ്മിൽ ധാരണയായി

രണ്ടാം റൌണ്ടിൽ സുമിത് ഓസ്ട്രിയയുടെ ഡൊമനിക് തീമിനെ നേരിടും

കനക് സാഹയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞരാണ് കണ്ടെത്തൽ നടത്തിയത് അൾട്രാവയലറ്റ് പ്രകാശരശ്മികളെയാണ് ആസ്ട്രോ സാറ്റ് പിടിച്ചെടുത്തത്